വോട്ടെടുപ്പ് ശനിയാഴ്ച

അഞ്ച് ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ നാളെ ന്യൂഡൽഹിയിലെത്തും

കൂടുതൽ വിവരങ്ങുമായി ഉദയൻ കിളിയന്നൂർ വോയ്സ് ഗവൺമെന്റിന്റെ വേഗത്തിലുള്ള പ്രിപ്പർത്തനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ തെളിവാണ് തെരുത്ത്ടുപ്പിൽ ഉണ്ടായ വലിയ വിജയമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞി

ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചില്ലായിരുന്ന് പ്രെങ്കിൽ രാമജന്മഭൂമി തർക്കത്തിന് പരിഹാരം കാണാനാകില്ലായിരുന്നുവെന്ന് ശ്രീ

കർഷക ക്ഷേമത്തിൽ യാതൊരു രാഷ്ട്രീയവുമില്ലെന്നും അവരുടെ സമൃദ്ധിക്കായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

നിക്ഷേപകരുടെ വിശ്വാസം നേടിയെടുക്കാനും സമ്പദ്വ്യവസ്ഥ ശക്തമാക്കുന്നതിനും നിരവധി പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ച് വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുദ്രാ യോജന സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ നിരവധി യുവാക്കൾക്ക് സ്വയം തൊഴിൽ നേടാനായി

പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാനുള്ള ഗവൺമെന്റ് തീരുമാനം രാജ്യത്തിന് ഗുണകരമാണോ എന്ന് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ചോദിച്ചു ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ശക്തി പൊതുമേഖലയാണ്

ജെ

റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ നയരൂപീകരണ സമിതിയാണ് തൽസ്ഥിതി തുടരാൻ തീരുമാനിച്ചത്

സുഗമമായ വോട്ടെടുപ്പിനായി വിശാലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സായുധ സേന ഡൽഹി പൊലീസ് ് തുടങ്ങിയ സേനയെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്

തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും കൃതൃസമയത്ത് എത്തുന്നൂതിനായി ഡൽഹി മെട്രോ സർവ്വീസുകൾ രാവിലെ നാല് മുതൽ ഏർ ്ആർംഭിക്കും വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കും

ചീഫ് ജസ്റ്റിസ് എസ്

സുപ്രധാന ചോദ്യങ്ങൾ വിശാല ബഞ്ചിന് വിടാൻ സുപ്രീം കോടതിയ്ക്ക് അധികാരമില്ലെന്ന് ഫാലി എസ് നരിമാൻ കപിൽ സിബൽ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകർ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദമുയർത്തിയിരുന്നു എന്നാൽ സുപ്രീം കോടതിക്ക് ഇതിന് അധികാരം ഉണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു

ഇന്ത്യയ്ക്കും മധ്യേഷ്യയ്ക്കും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അവ പ്രാവർത്തികമാക്കാനുമുള്ള പൊതുയിടം രൂപീകരിക്കാനുള്ള സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യാ മധ്യേഷ്യ വ്യാപാര സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മധ്യേഷ്യ ഇന്ത്യയുടെ അയൽപക്കത്തിന്റെ ഭാഗമാണെന്നും ശ്രീ

ചാബഹാർ തുറമുഖം മധ്യേഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വഴിയൊരുക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു വാണിജ്യ വികസനത്തിനായ്ട്രി വ്യോമ ഇടനാഴിക്കുള്ള സാധ്യതകൾ ഗവൺമെന്റ് പരിശ്രോധിച്ചു വരികയാണെന്നും ശ്രീ ജയ്ശങ്കർ പറഞ്ഞു

ഡി

കേരളത്തിന്റെ ഐ

കാർഷിക മേഖലയുടെ തിരിച്ചുടിക്ക് കാരണം തുടർച്ചയായ പ്രളയവും നാണ്യവിലത്തകർച്ചയുമാണെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു

കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇത്തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുണ്ടാകുമെന്നാണ് സൂചന

സെൻസസും ജനസംഖ്യു രജിസ്റ്ററും വെവ്വേറെ കാണേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പ്രിത്യേക്ം എടുത്തു പറഞ്ഞു

രക്ഷാപ്രവർത്തനം സങ്കീർണമായിരുന്നുവെന്നും അതിനായി ചൈനീസ് ഗവൺമെന്റ് നൽകിയ പിന്തുണയ്ക്കും സഹായത്തിനും ഇന്ത്യയെന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു

വോയ്സ് രാജ്യത്തെത്തിച്ചുവരെ കൂടാതെ പത്ത് പേർ കൂടി ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു

മന്ത്രാലയം അവരുമായി നിരന്തരം ബന്ധപ്പെടുകയാണെന്നും തിരിക്കെയെത്താനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും ശ്രീ കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചൈനയിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് ചൈനയിൽ നിന്ന് തിരികെ എത്തുന്നവർ കരുതൽ നിരീക്ഷണത്തിലാണ് ഇന്ത്യാ ചൈന ഇ വിസ സംവിധാനം താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ് ചൈനയിലുള്ള പാകിസ്ഥാനി വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ ഗവൺമെന്റിൽ നിന്നും യാതൊരു അപേക്ഷയും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊരു സാഹചര്യം വന്നാൽ ഇന്ത്യ പരിഗണിച്ചേക്കാമെന്നും ശ്രീ

അതേസമയം ജമ്മുകശ്മീർ സംബന്ധിച്ച പാകിസ്ഥാൻ മലേഷ്യ സംയുക്ത പ്രസ്താവന ഇന്ത്യ പൂർണമായി തള്ളുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു

വിഷയം മലേഷ്യൻ നേതൃത്വം വൃക്തമായി മനസ്സിലാക്കണമെന്നും ഭീകരവാദത്ത് ്രോത്സാഹിപ്പിക്കുന്ന പാക് നടപടി തിരിച്ചറിയണമെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സന്ദർശനത്തിനിടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ശ്രീ

വിദേശകാര്യ മന്ത്രി ഡോ

രാജ്ഘട്ട് സന്ദർശിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിക്ക് ശ്രീ

പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ശ്രീ രാജപക്സെയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത്

വിദേശകാര്യ മന്ത്രി ഡോ

തടവുകാരെ വിട്ടയച്ചതിന് ഇറാനിയൻ അധികൃതരെ അദ്ദേഹം നന്ദി അറിയിച്ചു മോചനത്തിന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നടത്തിയ ശ്രമങ്ങളെ ശ്രീ ജയശങ്കർ പ്രശംസിച്ചു